എന്നിന്റെ നിർണ്ണായക തീരുമാനങ്ങൾ കൈക്കൊളളുന്ന സമിതിയിൽ നിന്ന് എത്ര കാലം ഇന്ത്യയെ പുറത്ത് നിർത്താനാവുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

കാർഷിക ബില്ലുകളിൽ പ്രതിഷേധിച്ച് ശിരോമണി അകാലിദൾ എൻ ഡി

ഐപിഎല്ലി ൽ ഹൈദരാബാദിനെതിരെ കൊൽക്കത്തയ്ക്ക് അനായാസ ജയം ഇന്ന് രാജസ്ഥാൻ പഞ്ചാബ് പോരാട്ടം

വീഡിയോ കോൺഫറൻസിലൂടെ യുഎന്നിന്റെ ജനറൽ അസംബ്ലി യെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി വിശദാംശങ്ങളുമായി അരവിന്ദ് ഐക്യരാഷ്ട്രസഭയുടെ നിർണായക തീരുമാന സമിതിയിൽ നിന്ന് ഇന്ത്യയെ എത്രകാലം ഒഴിവാക്കി നിർത്താനാകുമെന്ന് പ്രധാനമന്ത്രി ചോദിച്ചു

മൂന്നാം ലോകയുദ്ധമുണ്ടായില്ലെങ്കിലും നിരവധി മറ്റ് യുദ്ധങ്ങൾക്കും ആഭ്യന്തരകലാപങ്ങൾക്കും ഭീകരാക്രമണങ്ങൾ ക്കും ലോകം സാക്ഷിയായി കോവിഡ് പ്രതിരോധത്തിൽ ഐക്യ രാഷ്ട്രസഭയുടെ ഇടപെടലുകൾ എവിടെ എത്തിനിൽക്കുകയാണെ ന്നും പ്രധാനമന്ത്രി ചോദിച്ചു ഐക്യരാഷ്ട്രസഭയുടെ സ്ഥാപക രാജ്യങ്ങളിലൊന്നായതിൽ ഇന്ത്യ അഭിമാനിക്കുന്നതായും യുഎൻ പരിഷ്കരണത്തിനായി ഇന്ത്യൻ ജനത കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യം ഐകൃരാഷ്ട്രസഭയ്ക്ക് നൽകിയ സംഭാവനകൾ കണക്കിലെടുത്ത് ഇന്ത്യയ്ക്ക് നിർണ്ണായകമായ പങ്കാളിത്തം ലഭിക്കണമെന്നാണ് ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിക്കു ന്നത് ഇന്ത്യ എപ്പോഴും മാനവരാശിയുടെ നന്മ കൂടി കണക്കിലെടു ത്താണ് മുന്നോട്ടു പോകുന്നതെന്നും പ്രധാനമന്തി വ്യക്തമാക്കി ന്യൂസ്ഡെസ്ക് ആകാശവാണി

ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ സംസാരി ക്കുകയായിരുന്നു അദ്ദേഹം

മുൻഗണന് നിശ്ചയിച്ചു മേഖലകളിൽ പങ്കാളിത്തം ഊട്ടിയുറപ്പിക്കാനും തീരുമാനിച്ചതായി ഇരു രാജ്യങ്ങളുടെയും ഗവൺമെന്റുകൾ വെർചൽ ഉഭയകക്ഷി സമ്മേളനത്തിന് ശേഷം പുറപ്പെടുവിച്ച സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇന്നലെ നടന്ന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹിന്ദ രജപക്സെയും ഉഭയകക്ഷി താല്പരൃമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തു

അമേരിക്കയിലെ ഇന്ത്യൻ വംശജരായ ഡോക്ടർമമാരുടെ വെർചൽ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം നിർമ്മിത ബുദ്ധി ഡിജിറ്റൽ സാങ്കേതികവിദൃ എന്നിവയുടെ സാധൃതകൾ ആരോഗ്യരംഗത്ത് ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തിന്റെ ഔഷധശാലയാണ് ഇന്ത്യയെന്ന് പറഞ്ഞ ശ്രീ നായിഡു വൈകാതെ തന്നെ ലോകത്തെ മികച്ച ആരോഗൃ ടൂറിസം കേന്ദ്രമായി ഇന്ത്യ മാറുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു

നാല് മണിക്കൂറോളം നീണ്ട പാർട്ടി കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം പ്രസിഡന്റ് സുഖ്ബീർ സിങ് ബാദലാണ് മുന്നണി വിടാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത് കാർഷിക വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കുന്നതിലും ജമ്മുകശ്മീരിൽ പഞ്ചാബി ഭാഷയ്ക്ക് ഔദ്യോഗിക ഭാഷാ പദവി ഒഴിവാക്കിയതിലും പ്രതിഷേധിച്ചാണ് നടപടിയെന്ന് ബാദൽ വൃക്തമാക്കി

നേരത്തെ പാർട്ടി പ്രതിനിധി ഹർസിമ്രത് കൌർ ബാദൽ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് രാജിവച്ചിരുന്നു

വിശദാംശങ്ങളിലേക്ക്

സംസ്ഥാനത്ത് പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്

യെദ്യൂരപ്പയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നിയമസഭയിൽ വിശ്വാസ വോട്ട് നേടി കോൺഗ്രസ് നേതാവ് സിദ്ധരാമയ്യ അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തിൽ ആറ് മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ശബ്ദവോട്ടോടെ സഭ ഗവൺമെന്റിലുള്ള വിശ്വാസം രേഖപ്പെടുത്തിയത്

പാവപ്പെട്ടവരുടെയും പാർശ്വ വത്കരിക്കപ്പെട്ടവരുടെയും ക്ഷേമത്തിനായി കഠിനാധ്യാനം ചെയ്യാൻ പ്രധാനമന്ത്രി ഭാരവാഹികളോട് ആഹ്വാനം ചെയ്തു രമൺ സിംഗ് വസുന്ധരാ രാജെ രഘുബീർ ദാസ് കേരളത്തിൽ നിന്നുള്ള എ

ഇന്നലെ ബിജെപി അധ്യക്ഷൻ ജെ

നദ്ദയാണ് ഭാരവാഹികളുടെ പേരു വിവരങ്ങൾ പുറത്തുവിട്ടത്

ആൻഡ്മാൻ നിക്കോബർ ദ്വീപുകളിൽ ആറ് മാസത്തെ ഇടവേളയ്ക്ക്ട് ് ശേഷം ഇന്ന് മുതൽ വിനോദസഞ്ചാരം പുനരാരംഭിക്കും കടൽ തീരങ്ങൾ ബോട്ട് സർവ്വീസുകൾ സെല്ലുലാർ ജ്യിൽ എന്നിവ നിബന്ധനകൾക്ക് വിധേയമായി പൊതുജ്ജിങ്ങൾക്ക് തുറന്നു കൊടുക്കും കോവിഡ് മാനദണ്ഡങ്ങൾ കർശ്നമായി പാലിച്ച് കൊണ്ടും ജനക്കൂട്ടം ഒഴിവാക്കിയുമായിരിക്കും പ്രവർത്തനങ്ങൾ അനുവദിക്കുക ജമ്മുകശ്മീരിൽ ഗുൽമാർഗ് ഗൊണ്ടോല റോപ് ട്രെയിൻ സർവ്വീസിന്റെ ആദ്യ സെക്ഷനും നിബന്ധനകൾക്ക് വിധേയമായി തുറക്കും

സീസണിലെ കൊൽക്കത്തയുടെ ആദ്യ ജയമാണിത് സൺ റൈസേഴ്സിന്റെ തുടർച്ചയായ രണ്ടാം തോൽവിയും ശുഭ്മാൻ ഗില്ലാണ് കളിയിലെ താരം